വിഭാഗങ്ങളിലുള്ള തടവുകാർക്ക് ജയിൽ ശിക്ഷയിൽ ഇളവ് അനുവദിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം

ന്യൂഡൽഹിയിൽ നടക്കുന്ന ഏഷ്യൻ ജൂനിയർ ഗുസ്തി ചാമ്പ്യൻഷിൽ ഇന്തൃയുടെ വിരേഷ് കുണ്ഡുവിന് വെങ്കലം

ഗ്രാമങ്ങളിലെ പൌരന്മാരുമായി സംവദിക്കുന്നത് താൻ ഉറ്റുനോക്കുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ അറിയിച്ചു

ഇവിടങ്ങളിൽ പ്രകാശമെത്തിക്കാനായതിലും നിരവധി ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് ചിറകു നൽകാനായതിലും ചാരിതാർത്ഥ്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആപ്പിലൂടെ പറഞ്ഞു

ന്യൂൻ്ടിലൂടെ പരിപാടി തത്സമയം വീക്ഷിക്കാം

മാനദണ്ഡം അംഗീകരിക്കുന്ന സ്ത്രീകൾ ഭിന്നലിംഗക്കാർ ദിവ്യാംഗർ എന്നിവർക്കാണ് ശിക്ഷാ ഇളവ് അനുവദിക്കുക

ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധൃക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്

ചില നിയന്ത്രണങ്ങൾ ഉൾപ്പെടുന്ന ഈ പദ്ധതിയിൽ കൊലപാതകം തീവ്രവാദ പ്രവർത്തനങ്ങൾ പണത്തിനായി തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം സ്ത്രീധന കൊലപാതകം മനുഷ്യക്കടത്ത് എന്നീ കുറ്റകൃത്യങ്ങൾ നടത്തിയവരെ പരിഗണിക്കില്ല ഒക്ടോബർ രണ്ടു മുതൽ മൂന്ന് ഘട്ടങ്ങളിലായാണ് തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുക

ഡൽഹി കോടതി പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാറിനു മുമ്പാകെ സമർപ്പിച്ച കുറ്റപത്രം കോടതി നാളെ പരിഗണിക്കും സ്പെഷ്യൽ പബ്ലക് പ്രോസിക്യൂട്ടർ എൻ കെ മറ്റ മുഖാന്തരം സമർപ്പിച്ച ചാർജ്ഷീറ്റിൽ ത്യാഗി സഹോദരന്മാരേയും അഗസ്റ്റവെസ്റ്റ്ലൻഡ് കമ്പനിയേയും പ്രതിപ്പട്ടികയിൽ ചേർത്തിട്ടുണ്ട്

ന്യൂഡൽഹിയിൽ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം ഫയൽ ചെയ്തത് ആന്ധ്രാ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിൽ നിന്നും എടുത്ത വായ്പ നിഷ്ക്രിയ ആസ്തിയായി മാറിയതിനെ തുടർന്നാണ് കേസ്

സാമ്പത്തിക അട്ടിമറികൾ നടത്തിയശേഷം വിചാരണ നേരിടാതിരിക്കാൻ രാജ്യം വിടുന്നവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ഗവൺമെന്റിനെ സഹായിക്കുന്ന തരത്തിലുള്ളതാണ് ബിൽ കോടിയോ അതിലധികമോപ്പ നുറു തുക്യുടെ ക്രമക്കേടുകൾ നടത്തുന്നവരാണ് ഈ നിബന്ധനയ്ക്കു ്കീഴിൽ വരുന്നതെന്ന് ബിൽ അവതരിപ്പിച്ച ധനകാര്യമന്ത്രി പിയുഷ്ട് ഗോയൽ പറഞ്ഞു

ധനകാരൃ സഹമന്ത്രി പൊൻ രാധാകൃഷ്ണനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്

ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അയ്യപ്പഭക്തന്മാരുടെ ബസുമായി കാർ കൂട്ടിയിടിക്കുകയായിരുന്നു ഇന്നു പുലർച്ചെ ഒരു മണിക്കാണ് അപകടം സുഹൃത്തിനെ വിദേശത്തേക്ക് യാത്രയയ്ക്കാൻ നെടുമ്പാശ്ശേരിയിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്

ഇന്ന് മഴ വീണ്ടും ശക്തമാകുമെന്നും ഞായറാഴ്ച വരെ മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

നിലവിൽ ഷെരീഫും പുത്രി മറിയവും മരുമകൻ മൊഹമ്മദ് സഫ്തറും ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ കഴിഞ്ഞ ജൂലൈ ആറിനാണ് കോടതി ഇവർക്ക് ശിക്ഷ വിധിച്ചത്

ഈവർഷം ഏപ്രിലിലും മേയിലും ഇരുരാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ പരസ്പര സന്ദർശനം നടത്തിയതിനെ തുടർന്നാണ് വിലയിരുത്തൽ

വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുമെന്നും യോഗം തീരുമാനിച്ചു

ഇന്ത്യയിൽ നിന്നും ആസിയാൻ അംഗരാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നയതന്ത്രജ്ഞർ ഉദ്യോഗസ്ഥർ വ്യവസായ പ്രമുഖർ വിദ്യാഭ്യാസ വിചക്ഷണർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരേയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഡൽഹി സംഭാഷണത്തിന്റെ മന്ത്രിതല യോഗം നാളെ വൈകിട്ട് നടക്കും

പ്രത്യേക നിയമമില്ലെങ്കിൽ സ്ത്രീകൾക്ക് എതിരെയുള്ള വിവേചനമായി കാണാതിരിക്കാൻ ന്യായീകരണമില്ലെന്നും കോടതി നിരീക്ഷിച്ചു

ഉത്തർപ്രദേശുകാരനായ വിരേഷിന്റെ ആദ്യ അന്താരാഷ്ട്ര മത്സരമാണിത് ദക്ഷിണ കൊറിയയുടെ ജിയോഗ്യുൽ കോനിനെയാണ് പരാജയപ്പെടുത്തിയത് ഇന്നലെ ഇന്ത്യയ്ക്ക് മറ്റൊരു മെഡലും ലഭിച്ചില്ല

വനിതകളുടെ മത്സരം ഇന്നും ഫ്രീസ്റ്റെൽ മത്സരം നാളെയും ആരംഭിക്കും

എന്നാൽ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ബി സായ് പ്രണീത് ആദ്യ റൌണ്ടിൽ പുറത്തായി